ആവേശം പകർന്ന് ദേശീയ നേതാക്കൾ വിവിധ റാലികളിൽ

പ്രവേശനത്തിനുള്ള യോഗൃത മാർക്ക് ആറ് ശ്രത്മാനം കുറയ്ക്കാൻ ഗവൺമെന്റ് തീരുമാന്ദിച്ചു

പ്രമുഖ നിയമ പണ്ഡിതനും ബാംഗ്ലൂർ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ഡയറക്ടറുമായ ഡോ

ചെന്നൈയെ ആറ് വിക്കറ്റിന് തകർത്ത് മുംബൈ ഐ

എൽ ഫൈനലിൽ ചാമ്പൃൻസ് ലീഗ് ഫുട്ബോളിൽ ചരിത്രം കുറിച്ച് ലിവർപൂൾ

ആറാം ഘട്ട വോട്ടെടുപ്പിന് നാല് ദിവസം ശേഷിക്കെ സ്ഥാനാർത്ഥികളും നേതാക്കളും അവസാനഘട്ട പ്രചാരണത്തിലേക്ക് കടന്നു വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

അണികൾക്ക് ആവേശം പകർന്ന് പ്രമുഖ നേതാക്കൾ ഇന്നിലെ വിവിധ റാലികളിൽ പങ്കെടുത്തു അധികാരത്തിൽ തിരിച്ചെത്തിയാൽ പൌരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ഇന്ത്യയിൽ താമസിക്കുന്ന ന്യൂനപക്ഷ അഭയാർത്ഥികൾക്ക് പൌരത്യം നൂർക്കുമെന്നും പശ്ചിമബംഗാളിലെ വെസ്റ്മിഡ്നാപൂരിൽ റാലിയെ അഭിസംബോധന ചെയ്യവേ ബി ജെ

് അനുധികൃത നുഴഞ്ഞുകയറ്റം തടയുന്നത് ലക്ഷ്യം വച്ച് ദേശീയ പൌരത്വ രജിസ്റ്റ്ർ രാജ്യത്തുടനീളം തയ്യാറാക്കുമെന്നും ശ്രീ

എന്നാൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ എൻ

എ ഗവൺമെന്റ് പരാജയപ്പെട്ടതായി ബൻഗുരാ ജില്ലയിലെ റണിബന്ദിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പശ്ചിമബംഗാളിലെ കുരുളിയയിലും ഝാർഖണ്ഡിലെ ചായ്ബാസയിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു അധികാരത്തിലെത്തിയാൽ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ബി

അധ്യക്ഷ മായാവതി തുടങ്ങി പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വി പാറ്റ് സ്തിപ്പുകൾ എണ്ണുന്ന വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധി സംഘം ഇന്നലെ ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി വി പാറ്റ് സ്തിപ്പുകളുടെ ഒത്തുനോക്കൽതോത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ സന്ദർശനം തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും സന്ദർശനത്തിനു ശേഷം ടി ഡി

അധ്യക്ഷനും ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രിയുമായ ചന്ദ്രകുമാർ നായിഡു പറഞ്ഞു ഇക്കാര്യത്തിൽ സുപ്രീംകോടതി നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടുതൽ വി വി പാറ്റ് സ്തിപ്പുകൾ എണ്ണി ഒത്തുനോക്കുന്നതിൽ തടസ്സപ്പെടുത്തുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി പറഞ്ഞു അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഇ വി എമ്മുകളെ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ അനാവശ്യ സംശയങ്ങൾ ഉയർത്തുകയാണെന്ന് ബി ജെ

പരാജയം ഇ വി എമ്മുകളുടെ മേൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണിതെന്നും പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ മുക്താർ ആഞ്ചാസ് നഖ്വി പറഞ്ഞു

ജി പരീക്ഷയ്ക്കുള്ള ജ്യൂ അദ്ധ്യയന വർഷത്തെ കുറഞ്ഞ യോഗ്യത മാർക്ക് ആറ് ശതമാനം കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു

ജി യോഗ്യത നേടാനാകും

ജി ക്കു പ്രവേശനം നേടാനുള്ള കുറഞ്ഞ യോഗ്യത

അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി വിൽബർ റോസ്റ്റിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ വൃവസായ പ്രതിനിധികൾ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭുവുമായി ചർച്ച നടത്തി

ഇത്തരം ആളുകൾക്ക് ഇനി മുതൽ വിസയും ഒസിഐ കാർഡുകളും നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി നേരത്തെ ഇത്തരക്കാർക്ക് വിസാ സൌകര്യങ്ങൾ നൽകിയിരുന്നില്ല

സുസ്ഥിര വികസനം പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ ആർട്ടിക് രാജ്യങ്ങൾക്കിടയിൽ ഏകോപനം സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായാണ് കൌൺസിൽ പ്രവർത്തിക്കുന്നത്

ഇന്നലെ അർദ്ധരാത്രിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് ഉച്ചയ്ക്കുശേഷം തിരുവനന്തപുരത്ത് ശാന്തികവാടത്തിൽ നടക്കും നിയമ വിദ്യാഭ്യാസ വിദഗ്ധൻ നിയമ അധ്യാപൻ എന്നീ നിലകളിൽ വൃക്തിമുദ്ര പതിപ്പിച്ച എൻ

ആധുനിക നിയമ പഠനത്തിന് രാജ്യത്ത് ദിശാബോധം നൽകിയ ഡോ

കൊൽക്കത്തയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജുഡീഷ്യൽ സയൻസസിന്റെ വൈസ് ചാൻസലറായും ഭോപ്പാലിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ആദ്യ ഡയറക്ടറായും പ്രവർത്തിച്ചു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ കമ്മിഷൻ അംഗം കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിട്യൂട്ട് തിരുവനന്തപുരം സെൻട്രൽ ഫോർ ഡവലപ്മെന്റ് സ്റ്റഡീസ്ട് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്

വെള്ളപ്പൊക്കം ഉൾപ്പെടെ പ്രകൃതിദുരന്തങ്ങൾ നേരിടുന്നതിൽ നെതർലൻഡ്സ് നടപ്പാക്കുന്ന മാതൃകകൾ മനസ്സിലാക്കും

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

അതാണ് ഇന്നലെ ലിവർപൂൾ തങ്ങളുടെ സ്വന്തം തട്ടകമായ ആന്റ്ഫീൽഡിൽ ആരാധകർക്ക് സമ്മാനിച്ചത്

ഒറിഗിയും വെയ്നാൽഡമും നേടിയ ഇരട്ട ഗ്യോളൂകുളാണ് സ്പാനിഷ് വമ്പന്മാരെ തകർത്തെറിയാൻ ലിവർപൂളിനെ തൂണച്ചത്

അടുത്ത മാസം രണ്ടിന് സ്പെയിനിലെ മ്മൂഡിഡിലാണ് ഫൈനൽ മത്സരം

ഒൻപത് പന്ത് അവശേഷിക്കെയാണ് മുംബൈ ലക്ഷ്യം കണ്ടത്

മൂന്നു തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒളിംപിക്സിൽ പങ്കെടുത്ത ഇദ്ദേഹം ഇപ്പോൾ നാഡീക്ഷയം സംബന്ധിച്ച രോഗത്തിനു ഡൽഹി എഐഐഎംഎസിൽ ചികിത്സയിലാണ്